തോമസ് ഐസക് രാവിലെ ഒൻപതിന് നിയമസഭയിൽ അവതരിപ്പിക്കും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ പാവങ്ങൾക്കായി ഗവൺമെന്റ് നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് നേരിട്ട് പണം നൽകുന്നതിന് ഉപയോഗപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വൈറസ് ബാധയില്ലെന്ന് പരിശോധനയിൽ തെളിഞ്ഞതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം

ജയരാജൻ ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

രാവിലെ ഒൻപതിന് മന്ത്രി ഡോ തോമസ് ഐസക് അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വിഭവ സമാഹരണവും പ്രഖ്യാപിച്ചേക്കും സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ ചെലവു ചുരുക്കൽ നടപടികളും ഉണ്ടായേക്കും രമ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ പാവങ്ങൾക്കായി ഗവൺമെന്റ് നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് നേരിട്ട് പണം നൽകുന്നതിന് ഉപയോഗപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവർ പാവങ്ങൾക്കെതിരായ മനസ്ഥിതിയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പ്രതിഷേധം അക്രമങ്ങൾ കാണിക്കാൻ അവകാശമാണെന്ന് കരുതരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് രാജ്യസഭയിൽ നടന്ന നന്ദി പ്രമേയ ചർച്ചക്ക് മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി

നിയമ ഭേദഗതിക്കെതിരായ സമരത്തിൽ പൌരത്വ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന നിയമസഭയിൽ നടത്തിയ പ്രസംഗം ഇതിന് തെളിവാണെന്നും മോദി അഭിപ്രായപ്പെട്ടു രേര നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ദേശീയ തലത്തിൽ നടത്തുന്ന സമരത്തെ നേരിടുന്നതിന് പ്രധാനമന്ത്രി ആയുധമാക്കിമാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പ്രക്ഷോപങ്ങളെ മുഖ്യമന്ത്രി ഒറ്റുകൊടുത്തിരിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു ദേശീയ തലത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തെ തകർക്കാൻ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി ആയുധം നൽകിയതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു

ഈ മൂന്ന് പേരുടേയും സ്ഥിതി തൃപ്തികരമാണ്

നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആരുടേയും ആരോഗ്യനിലയിൽ ആശങ്കയ്ക്ക് വകയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി

ബീച്ച് ആശുപത്രിയിൽ മൂന്നും മെഡിക്കൽ കോളേജിൽ ഒരാളും ഉൾപ്പെടെ നാലുപേർ ഐസൊലേഷൻ വാർഡുകളിൽ നിരീക്ഷണത്തിലുണ്ട്

പുതുതായി രണ്ട് പേരെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ദരദ കൊറോണ വൈറസ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ആരോഗ്യവകുപ്പ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു

കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മൂന്ന് പേർ നിരീക്ഷണത്തിൽ ഉണ്ട്

ജില്ലയിൽ കൊറോണ വൈറസ് ബാധയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ വകുപ്പ് ഫ്ളാഷ് തെർമോ മീറ്റർ പരിശോധന ശക്തമാക്കി രുര കോട്ടയം ജില്ലയിൽ ടൂറിസം മേഖലയിൽ കൊറോണ മുൻ കരുതൽ ഊർജിതമാക്കി അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമായ കുമരകത്ത് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ കഴിഞ്ഞിരുന്ന മൂന്നുപേരിൽ രണ്ടു പേർ ആശുപത്രി വിട്ടു

റൺ ഫോർ യൂണിറ്റി എന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം ആദ്യ മത്സരം മാർച്ച് ഒന്നിന് കണ്ണൂർ പൊലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുമെന്ന് മന്ത്രി പറഞ്ഞു

മെഗാ മാരത്തൺ തിരുവനന്തപുരം ശംഖുമുഖത്ത് നടത്തും കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ മിനി മാരത്തണാണ് സംഘടിപ്പിക്കുകയെന്നും മന്ത്രി അറിയിച്ചു രുമ ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

ദക്ഷിണാഫ്രിക്കയിലെ പോച്ചഫ്സ്ട്രൂമിൽ ഇന്നലെ നടന്ന സെമിയിൽ ന്യൂസിലന്റിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ബംഗ്ലാദേശ് ഫൈനലിലെത്തിയത്

രണ്ട് പോയിന്റ് നേടിയ ഇരു ടീമുകൾക്കും ഇന്നത്തെ ലീഗ് മത്സരം നിർണ്ണായകമാണ് രുര നാഗ്പൂരിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം വിദർഭ മൂന്നാം ദിവസത്തെ മത്സരം മഴമൂലം മുടങ്ങി

രുര കൊല്ലത്ത് ദേശീയ സീനിയർ വനിതാ ഹോക്കി എ ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും ആദ്യ സെമിയിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മധ്യപ്രദേശ് ഹോക്കി അക്കാദമിയെ നേരിടും രണ്ടാം സെമിയിൽ ഹരിയാനയും മഹാരാഷ്ട്രയും തമ്മിലാണ് മത്സരം ഫൈനൽ മത്സരം മറ്റന്നാൾ വൈകീട്ട് നാലിന് നടക്കും ഉച്ചയ്ക്ക് ലൂസേഴ്സ് ഫൈനലുമുണ്ടാകും ദേദ സംസ്ഥാന സഹകരണവകുപ്പും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കൃതി അന്താരാഷ്ട്ര പുസ്തക മേളയും വിജ്ഞാനോത്സവവും കൊച്ചിയിൽ തുടങ്ങി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോ

ലീലാവതിയും പ്രൊഫസർ എം

സാനുവും സംയുക്തമായി മേള ഉദ്ഘാടനം ചെയ്തു

സമുദ്രോൽപ്പന കയറ്റുമതി വികസന അതോറിറ്റിയും സീഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

നീല വിപ്ലവം ഉദ്പാദനത്തിനുമപ്പുറം മൂല്യ വർധന എന്നതാണ് മേളയുടെ പ്രമേയം

രുമ ലഹരി വർജന മിഷൻ വിമുക്തിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് വൈകീട്ട് വിമുക്തി ജ്വാല തെളിയിക്കും സംസ്ഥാനത്തെ എല്ലാ ജനവിഭാഗങ്ങളേയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കി കേരളത്തെ ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ജില്ലാ ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജ്വാല തെളിയിക്കുക കോഴിക്കോട് ബീച്ചിൽ വൈകീട്ട് ആറിന് കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ലഹരി വിരുദ്ധ ദീപം തെളിയിക്കും രുമ ആരോഗ്യമേഖലയിലെ വിവിധ ശാസ്ത്ര വിഭാഗങ്ങൾ തമ്മിൽ മത്സരമല്ല ഏകോപനമാണ് ആവശ്യമെന്ന് മന്ത്രി കെ

സംസ്ഥാന ഹോമിയോപ്പതി അവാർഡ് ദാന ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പല രോഗങ്ങൾക്കും ഹോമിയോ ചികിത്സ മന്ത്രി ഫലപ്രദമാണെങ്കിലും കൊറോണയും നിപ്പയും പോലെ അസുഖങ്ങളെ ലോകാരോഗ്യ സംഘടനയുടെ മാർഗ നിർദ്ദേശങ്ങളനുസരിച്ച് മാത്രമേ ചികിത്സിക്കാനാകുവെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ഹോമിയോപ്പതി അവാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു രുമ കൊറോണയെ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഏതു സാഹചര്യത്തേയും നേരിടാൻ സജ്ജീകരണങ്ങൾ ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി ടി

ദേദ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ റീജ്യണൽ ഔട്ട് റീച്ച് ബ്യൂറോ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ കൊറോണ വൈറസ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും

രേര കോഴിക്കോട് പന്തീരാങ്കാവ് യുഎപിഎ കേസിൽ മുഖ്യമന്ത്രി മലക്കം മറിഞ്ഞതിന്റെ കാരണമെന്തെന്ന് വ്യക്തമാക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

പാർട്ടിയിലെ മറ്റു നേതാക്കളുടെയോ പ്രതിപക്ഷ കക്ഷികളുടെയോ സമ്മർദ്ദം കൊണ്ടാണോ നിലപാടുമാറ്റമെന്നും സുരേന്ദ്രൻ ചോദിച്ചു രമേ പ്രമുഖ ചിത്രകാരനും നാടകകൃത്തും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ കെ ബാലസുബ്രഹ്മണ്യൻ കൊച്ചിയിൽ അന്തരിച്ചു

സംസ്കാരം ഇന്ന് എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടക്കും